അക്കാരൃം തിരുത്തുമെന്ന വാഗ്ദ്ദാനം പ്രകടന പത്രികയിൽ നൽകാൻ തയ്യാറക്കുണ്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

എ ഗുവ്യൺമെന്റിന്റെ നയങ്ങൾ കർഷകരുടെ ഉന്നമനത്തിന്നും പ്രധാനമന്ത്രി

ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ഊർജ്ജിതം

ദക്ഷിണാഫ്രിക്കയെ ഇന്നിംഗ്സിന് തോൽപ്പിച്ച് ഇന്ത്യ പരമ്പര നേടി

പാവപ്പെട്ടവരെ ക്കേന്ദ്രീകരിച്ചുള്ളതാണ് തന്റെ ഗവൺമെന്റിന്റെ നയവും പദ്ധതികളുമെന്ന് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ വോയിസ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീർ നടപടികളെ എതിർത്ത പ്രതിപക്ഷത്തിന് രൂക്ഷ വിമർശനമാണ് നൽകിയത്

കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ എതിർക്കുന്ന് പ്രതിപക്ഷ ് പാർട്ടികൾ ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി ന്റൽക്കണ്മെന്നാണ് വാദിക്കുന്നതെങ്കിൽ അക്കാര്യം അവരുടെ ത്രെർഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രധാനമൂന്ത്രി പറഞ്ഞു

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിന്റെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ പുരോഗതിയെക്കുറിച്ച് പരാമർശിച്ച് ശ്രീ ഫഡ്നാവിന്റെ നേതൃത്വങ്ങൾ ഗവൺമെന്റ് ആവിഷ്കരിച്ച വിവിധ പദ്ധതികളുടെ വലിയ പുരോഗതിയാണ് കൈവരിക്കാൻ കഴിഞ്ഞതെന്നും ശ്രീ മോദി പറഞ്ഞു വിദർഭയിലെ സഹോലി മേഖലയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും അദ്ദേഹം പങ്കെടുത്തു

ജെ

മഹാരാഷ്ട്രയിലെ ലാത്തൂർ ജില്ലയിലെ ഔസയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവാക്കൾ ജോലി ആവശ്യപ്പെടുമ്പോൾ ആകാശത്തെ ചന്ദ്രനെ നോക്കുവാനാണ് ഗവൺമെന്റ് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

മുംബൈയിലെ ചാന്ദീവലിയിലും ധാരാവിയിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും

സ്കൂളുകളും കോളേജുകളും തുറന്നപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫോൺ സേവനം ലഭ്യ മാക്കിയിരുന്നു

ജമ്മുകാശ്മീരിന്റെ പ്രത്യേക് പദവി പിൻവലിച്ചതോടെയാണ് ഫോൺ ഉപയോഗത്തിൽ ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ജമ്മുകാശ്മീരിൽ വിനോദസ്ഞ്ചർരികൾക്കുള്ള നിയന്ത്രണം കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു

ദുരന്തത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ജപ്പാൻ ജനത കരകയറട്ടെ എന്ന് ട്വിറ്ററിലൂടെ അദ്ദേഹം ആശംസിച്ചു പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ ജപ്പാന്റെ മുൻ കരുതലുകൾ എന്നും ലോക മാതൃകയാണ്

മറ്റ് രാജൃങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ വളർച്ചാനിരക്ക് കൂടുതലാ ണെന്ന് വാഷിംഗ്ടണിൽ അദ്ദേഹം പി ടി

ഇ ഒ

സാമ്പത്തിക മേഖല നേരിടുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള തുടർ ചർച്ചകളാണ് നടക്കുക

പ്ട്യ്പകൾ സംബന്ധിച്ച പുതിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതയും വീല്യിരുത്തപ്പെടും

വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ മറിയം ത്രേസ്യ ഉൾപ്പെടെ അഞ്ച് പേരാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്

സിസ്റ്റർ മറിയം ത്രേസ്യയുടെ മാതൃ രൂപതയായ ഇരിങ്ങാലക്കുടയിലും കൂഴിക്കാട്ട് ശേരിയിലെ കബറിടത്തിലും മറ്റ് പ്രധാന ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു

ഇന്ത്യയിൽ നിന്നുള്ള കന്യാസ്ത്രി വിശുദ്ധ പദവിയിലേയ്ക്ക് ഉയർന്നത് രാജ്യത്തിന്റെ അഭിമാന നിമിഷമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കഴിഞ്ഞ ഓഗസ്റ്റ് ആറ് മുതൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത്

അടുത്തമാസം മധ്യത്തോടെ വാദം കേൾക്കുന്നത് പൂർത്തീകരിക്കാനാകുമെന്നാണ് കോടതി പ്രതീക്ഷിക്കുന്നത്

അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തേത്

ന്യൂഡൽഹിയിൽ ഊർജ്ജരംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇക്കാരൃത്തിൽ എൻ

എ

ഉജ്ജ്വല സൌഭാഗൃ എന്നീ പദ്ധതികൾ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്നും ശ്രീ

മുൻ് ലോകചാമ്പൃനായ മേരികോം ജമുന ബൊറോ ലവ്ലീന ബെഗോഹെയ്ൻ എന്നീ ഇന്ത്യൻ താരങ്ങൾക്ക് വെങ്കലമെഡലും ലഭിച്ചു

മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ രണ്ടിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി

ഫൈനലിൽ ജപ്പാന്റെ യുസുകെ ഒനോദേരായെ ഒന്നിനെതിരെ രണ്ട് ഗെയിമുകൾക്കാണ് ലക്ഷ്യസെൻ പരാജയപ്പെടുത്തിയത്

സംസ്ഥാന ഗവണ്മെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞാണ് എൽ ഡി

പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മൂന്നര വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് നടപ്പാ ക്കാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽപറഞ്ഞു മുൻ കേന്ദ്ര മന്ത്രി എ

ആന്റണി നാളെ യു ഡി

തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവ് കുഴഞ്ഞുവീണു മരിച്ചതിനെ തുടർന്ന് പ്രചാരണം നിർത്തിവച്ചു

ഐ സി സി അംഗവും ഡി സി

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേത്രാക്കൾ അദ്ദേഹ ത്തിന് അനുശോചനം അർപ്പിച്ചു

ജെ

സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻ പീള്ളയും കുമ്മനം രാജശേഖരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ്ൻജീവമായി രംഗത്തുണ്ട്